സിംഗപ്പൂർ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വിദേശകാരൃ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി

തിരഞ്ഞെടുപ്പുമായി ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നവരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ

ആഭ്യന്തര സുരക്ഷ ഉൾപ്പെടെ ഇന്ത്യയ്ക്കും അമേരിക്കക്കും പൊതുതാൽപര്യമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു അമേരിക്കയുടെ പസഫിക് കമാൻഡിനെ ഇന്തോ പസഫിക് കമാൻഡ് എന്ന് പുനർനാമകരണം ചെയ്തശേഷം നടന്ന കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധേയമാണ് പസഫിക് മേഖലയിൽ ഇന്തൃയ്ക്കുള്ള പ്രാധാനൃം കണക്കിലെടുത്താണ് പെന്റഗൺ പുനർനാമകരണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ വിശദാംശങ്ങളുമായി ഗോപകുമാർ

ഇന്തോ പസഫിക് മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ശ്രീ

പരസ്പര ബഹുമാനം സംഭാഷണം സഹകരണം സമാധാനം ഐശ്വരൃം എന്നീ അഞ്ച് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനം ഈ മേഖലയിലെ രാജ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും സമാധാനവും വികസനവും സാധ്യമാകും രാജ്യങ്ങൾ തമ്മിൽ പ്രാദേശിക സഹകരണം അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അംഗരാജ്യങ്ങൾ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ശ്രീ

സിംഗപ്പൂർ സന്ദർശനത്തിന്റെ അവസാന ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത സിങ്കപ്പൂരിലെ ക്ലിഫോർഡ് പിയറിൽ അനുസ്മരണ ഫലകം അനാഛാദനം ചെയ്തു

പുരാതനമായ മാരിയമ്മൻ ക്ഷേത്രവും ശ്രീ

ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡെൻഡ്രോബിയം നരേന്ദ്ര മോദി എന്ന് പേരിട്ട ഓർക്കിഡ് സിംഗപ്പൂർ ബൊട്ടാണിക്കൽ ഗാർഡനചലാഠ് സൂക്ഷിച്ചിരിക്കുന്നത്

സന്ദർശന വേളയിൽ ശ്രീമതി

ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ശ്രീമതി

ബി എസ് എ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അവർ അദ്ധ്യക്ഷയായിരിക്കുമെന്നും വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ട്വീറ്റ് ചെയ്തു മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുകയും അക്രമരാഹിത്യ ത്വചിന്തയ്ക്ക് രുപം നല്കുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പൈതൃക സ്ഥാനമായ ഫീനിക്സ് സെറ്റിൽമെന്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും

റാവത്ത് കൊൽക്കത്തയിൽ അറിയിച്ചു ഈ മൊബൈൽ ആപ്പ് സാധാരണക്കാരന് തെളിവു സഹിതം പരാതികൾ അറിയിക്കാൻ അവസരം നല്കുന്നതായും ശ്രീ

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതികൾ സംബന്ധിച്ച് വോട്ടിംഗ് മെഷീൻ സംവിധാനത്തിന്റെ വിശ്വാസതയെ സംശയിക്കേണ്ട ആവശ്യമില്ലെന്നും ശ്രീ

ബാലറ്റ് പേപ്പറുകൾ ഇനി തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുകയില്ലെന്നും ശ്രീ റാവത്ത് വ്യക്തമാക്കി

രാഷ്ട്രപതിയുടെ ഉത്ഘാടന പ്രസംഗത്തോടെയായിരിക്കും സമ്മേളനത്തിന് തുടക്കമാകുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രമുഖ പദ്ധതികൾ സംബന്ധിച്ച് അവതരണങ്ങളും ചർച്ചകളും നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നിതി ആയോഗ് വൈസ് ചെയർമാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരും സംബന്ധിക്കും

മദ്ധ്യ ദീർഘകാല നയങ്ങൾ രൂപീകരിച്ചും അധികം വരുന്ന ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്തും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ആഗോള സാമ്പത്തിക സ്ഥിതിയും അധിക ഉത്പാദനവും കർഷകരുടെ പ്രശ്നങ്ങൾ കൂട്ടാൻ ഇടയാക്കിയതായി അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ നാല് വർഷത്തെ കേന്ദ്രഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നാഗ്പൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രോഗബാധിതരുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കമുണ്ടായതായി സംശയിക്കുന്നവരാണിവർ ഭീതി വേണ്ടെന്നും അതേസമയം അതീവജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദേശിച്ചു ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്

ഗവൺമെന്റിന്റെ വികസനയാത്രയിൽ സഹകരിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി ശ്രീമതി ഇറാനി പറഞ്ഞു

ഡിജിറ്റൽ സ്കിൽ ഇന്തൃ പദ്ധതികളിലൂടെ സാധാരണക്കാരെ കൂടുതൽ ശക്തിപ്പെടുത്താനായതായും കേന്ദ്രമന്തി പറഞ്ഞു കേന്ദ്രഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ബീഹാറിലെ മുസഫർപ്പൂരിൽ നടന്ന ചടങ്ങിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീ രവിശങ്കർ പ്രസാദ് ഐടി മേഖലയ്ക്ക് കരുത്തു പകരാൻ മൊബൈൽ ഫോണുകൾ അവയുടെ വിവിധ പാർട്സുകൾ എന്നിവ രാജ്യത്തു തന്നെ നിർമ്മിക്കുന്നതിന് ഗവൺമെന്റ് ഊന്നൽ നല്കുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു

ഉദ്യോഗസ്ഥരുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് ഗൂഗിളിന്റെ തീരുമാനം

പദ്ധതിയുമായി സഹകരിക്കാൻ ഗൂഗിൾ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഗൂഗിളിൽ നിന്നും രാജി വച്ചിരുന്നു

പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കും എന്ന് അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യത്തിൽ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു തങ്ങളുടെ കൂടുംബാംഗങ്ങൾ പരിസ്ഥിതിക്ക് ഹാനികരമായ ഉത്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥികൾ വാഗ്ദാനം ചെയ്തു

പ്ലാസ്റ്റിക് മലിനീകരണത്തെ കീഴടക്കുക എന്നതാണ് ഇക്കൊല്ലത്തെ പരിസ്ഥിതി ദിന പ്രമേയം